ഇൻസ്പെക്ടർ ജനറൽമാരുടേയും വാർഷികയോഗം ഗുജറാത്തിൽ തുടരുന്നു

തുടർച്ചയായ ഒൻപതാം ദ്രീവസ്വും പാർലമെന്റിൽ ബഹളം

ര ഹൈക്കോടതി ഉത്തരവ്

ഇന്ത്യ ചൈന ഉച്ചകോടിക്ക് മുന്നോടിയായി ഉന്നതതല ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങി

പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗം ഇപ്പോൾ നടക്കുകയാണ് നർമ്മദ ജില്ലയിൽ ഏകതാ പ്രതിമയുടെ സമീപത്തുളള വേദിയിലാണ് സമ്മേളനം രാജൃത്തുടനീളമുളള ഉന്നതപോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനത്തിൽ സുരക്ഷാ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക ഇന്നലെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിങാണ് സമ്മേളനം ഉൽഘാടനം ചെയ്തത് ജമ്മുകാശ്മീരിലെ ആക്രമണ സംഭവങ്ങൾ അതിർത്തി കടന്നുളള തീവ്രവാദം യുവാക്കളെ തീവ്രവാദത്തിനു പ്രേരിപ്പിക്കുക എന്നിവ സമ്മേളനത്തിൽ പ്രധാന വിഷയങ്ങളാകും

ഇതേത്തുടർന്ന് ലോക്സഭ തടസ്സപ്പെട്ടു അംഗങ്ങളുടെ ബഹളത്തിനിടയിലും ര ് ബില്ലുകൾ പാസാക്കി കാവേരി നദീ അണക്കെട്ട് പണിയെണമെന്ന ആവശ്യവുമായാണ് എ ഐ എ ഡി എം കെ ബഹളം ഉ ാക്കിയത് ആന്ധ്രാപ്രദേശിനുള്ള ആശ്വാസ പദ്ധതികൾ ആവശ്യപ്പെട്ടുകൊ ് ടി ഡി പിയും നടുത്തളത്തിലിറങ്ങി രാജ്യസഭയിലും പ്രതിഷേധം ഉയർന്നു റഫേൽ വിമാനം ഇടപാടിലാണ് പ്രധാനമായും ബഹളമു ായത് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു മുദ്രാവാകൃം വിളി ഉയർന്നത്

കോൺഗ്രസ് മുഖപത്രമായ നാഷണൽ ഹെറാൾഡ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ര ാഴ്ചക്കുള്ളിൽ ഒഴിയാനാണ് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ പത്രം ഓഫീസ് പ്രവർത്തിക്കുന്നില്ലെന്നും ഒഴിഞ്ഞ് തരാത്തത് വാടക കരാറിന് വിരുദ്ധമാണ്ണെന്നും ക ത്തിയതിനെ തുടർന്നാണ് കോടതി വിധി

ഉത്തരവിൽ ആശങ്ക വേ ന്നും മന്ത്രാലയം വിശദീകരിക്കുന്നു സംശയമുള്ള ആരുടേയും കമ്പ്യൂട്ടറുകളിൽ കടന്നു കയറി ഡേറ്റ പരിശോധിക്കാനും നിരീക്ഷണം നടത്താനും അന്വേഷണ ഏജൻസികൾക്ക് അനുവാദം നൽകുന്നതാണ് നടപടി

സി ബി ഐ എൻ ഐ എ റോ തുടങ്ങിയ ഉന്നത അന്വേഷണ ഏജൻസികളാണ് ലിസ്റ്റിലുള്ളത് ഇതോടെ ഈ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഏത് വിവരവും നൽകാൻ ഇന്റർനെറ്റ് സേവനദാതാക്കളും പൌരന്മാരും നിർബന്ധിതരാവും രാജ്യ മുൻനിർത്തിയാണ് നടപടിയെന്ന് ഗവൺമെന്റ് സുരക്ഷ വിശദീകരിക്കുമ്പോൾ രാഷ്ട്രീയ നേട്ടമാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസിന്റെ വിമർശനം

കുറ്റം തെളിയിക്കാനായില്ലെന്നും ഗൂഡാലോചനയിൽ പങ്കു െ ന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്നും മുംബൈ കോടതി പറഞ്ഞു സൊഹ്റാബുദ്ദീൻ ഷേഖിനെയും ഭാര്യ കൌസർബിയേയും വ്യാജ ഏറ്റുമുട്ടലിലൂടെ പോലീസ് വധിച്ചെന്ന കേസാണ് ഇത്

ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട സുശീൽ ശർമ്മ ശിക്ഷാകാലാവധിക്ക് ശേഷവും ജയിലിൽ തുടരുകയാണ് ഇതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വിധി ശിക്ഷാകാലാവധി കഴിഞ്ഞെങ്കിലും മോചിപ്പിക്കണമെന്ന ആവശ്യം നേരത്തെ ഡൽഹി ഗവൺമെന്റ് നിരസിച്ചിരുന്നു വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിക്കാൻ ആരുമില്ല എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് ഭാര്യ നൈന സാഹ്നിയെ കൊലപ്പെടുത്തിയ ശേഷം ശരീര ഭാഗങ്ങൾ തന്തൂരി അടുപ്പിൽ വേവിച്ചെന്ന കേസാണ് ഇത്

ചൈനയുമായുള്ള ദീർഘനാളത്തെ ബന്ധം തുടരാനാവുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തുഷ്ടി പ്രകടിപ്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ വോയിസ് പുതിയ കാലഘട്ടത്തിനനുസൃതമായ നടപടികളിലൂടെ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു ചൈനയുടെയും ഇന്ത്യയുടെയും മനസ്സുകളെ കൂടുതൽ അടുപ്പിക്കാനാണ് തന്റേയും ചൈനീസ് പ്രസിഡന്റ് ഷിചിൻ പിങ്ങിന്റെയും ശ്രമമെന്നും അദ്ദേഹം പറുഞ്ഞു ഇന്ത്യ ചൈന ഉച്ചകോടിക്ക് മുന്നോടിയായി വിദേശക്ട്ര്യമന്ത്രി സുഷമസ്വരാജ് ചൈനീസ് വിദേശകാരൃ മന്ത്രി വാങ്ങ്യീയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായ ഒരു പുതിയ ഘട്ടത്തിലെത്തിയിരിക്കുകയാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങ്യീ പറഞ്ഞു ഇന്ത്യയേയും ചൈനയേയും മെച്ചപ്പെട്ട ബന്ധത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നതിന് മാധ്യമങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാനു ന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നാലു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രി ന്യൂഡൽഹിയിലെത്തിയത് ഏപ്രിലിൽ ഇന്തൃയിൽ നടക്കാനിരിക്കുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ചർച്ചകൾ

ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കാതലാണ് ഇന്ത്യ ചൈന ബന്ധമെന്ന് രാഷ്ട്രപതി പറഞ്ഞു പ്രാദേശിക തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

എല്ലാ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്ട്ടറിമാരുമായി തന്റെ ഓഫീസ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടൂന്നു ന്നും ഒരിടത്തും വളത്തിന് ദൌർലഭ്യം ഇല്ലെന്നു അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും സംസ്ഥാനത്തിലെ വിതരണക്കാർ പ്രശ്നം ഉ ാക്കിയിട്ടു അതിന് കേന്ദ്രഗവണ്മെന്റിനെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു

അപേക്ഷയ്ക്ക് പ്രസക്തിയില്ലെന്ന് കോടതി വ്യക്തമാക്കി

മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നാണ് കലാപം ഉ ായത്

നിങ്ങളുടെ നാവികസേനയെ അറിയുക എന്ന പ്രചരണ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് യുദ്ധക്കപ്പൽ സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്നത്

സേവന വേതന കരാറുകൾ സംബന്ധിച്ച ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാജ്യത്തൊട്ടാകെയുള്ള മൂന്നരലക്ഷം ബാങ്ക് ഓഫീസർമാർ പണിമുടക്കുന്നത് എന്നാൽ സഹകരണ ബാങ്കുകൾ മറ്റ് സ്വകാര്യ ബാങ്കുകൾ തുടങ്ങിയവ പ്രവർത്തിച്ചു

ഉടൻ വാദം കേൾക്ക്ണ്ണ്മെന്ന് ആവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്

ശരാശരിയെക്കാൾ നാല് ഡിഗ്രി താഴ്ന്നാണ് ഇന്നലെ രാത്രി താപനില അനുഭവപ്പെട്ടത് ഇൌ സീസണിൽ അനുഭവപ്പെട്ട ഏറ്റവും തീഷ്ണമായ ശൈത്യമാണിത് ര ് ദിവസം കൂടി ഡൽഹിയിൽ അതിശൈത്യം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ര ് ഭീകരഗ്രൂപ്പ് സംഘങ്ങൾ ഇയാൾ തമ്മിലുള്ള വെടിവയ്പ്പിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് വിശദീകരിച്ചത് പർവാൻ മേഖലയിലെ താലിബാൻ സംഘത്തിന്റെ കമാന്ററായിരുന്നു മുല്ല ക്വാദിർ

ഫിഫ നടത്തിയ കണക്കെടുപ്പിലാണ് ഈ വിവരങ്ങൾ പുറത്ത് വന്നത്